സംസ്ഥാന സർക്കാരുകളുടെ പ്രിത്രോധ പ്രവർത്തനങ്ങൾ രോഗമുക്തി വർദ്ധിപ്പിച്ചതായി ക്യേന്ദ്ര ആരോഗൃമന്ത്രാലയം

തീവ്രോഗബാധിത്യ പ്ര്ദേശങ്ങളിൽ ഇന്ന് മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ

ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും

പതിനായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി

കേന്ദ്രവും സംസ്ഥാനങ്ങളും സ്വീകരിച്ച പ്രതിരോധ നടപടികൾ രോഗമുക്തി നിരക്കിലെ ക്രമാനുഗതമായ വർധനവിന് കാരണമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഗുരുഗ്രാമിൽ സി

കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കോവിഡ് പ്രതിരോധത്തിൽ കൈവരിച്ച നേട്ടം ലോകം ശ്രദ്ധയോടെ യാണ് വീക്ഷിക്കുന്നത്

സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി വാരാന്ത്യത്തിൽ പ്രത്യേക ശുചീകരണ നടപടികൾ നടത്താനും തീരുമാനമുണ്ട്

ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത നടത്തിപ്പ് രാജകുടുംബത്തിന്റെ അവകാശങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ വൃവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ കേസിലെ പരിഗണനാ വിഷയങ്ങളായിരുന്നു

വിധിയെ ചോദ്യം ചെയ്ത് അന്ന് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ യാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്

മുപ്പതോളം കോൺഗ്രസ് എം എൽ എമാർ തന്നെ പിന്തുണയ്ക്കുന്നതിനാൽ ഗെഹ്ലോട്ട് സർക്കാർ ന്യൂനപക്ഷത്തി ലേക്ക് ചുരുങ്ങിയെ ന്നും ശ്രീ പൈലറ്റ് അവകാശപ്പെട്ടു ഇന്ന് നടക്കുന്ന എം

ഇതിനിടെ മധ്യപ്രദേശിൽ സംഭവിച്ചത് പോലെ രാജസ്ഥാനിലും സർക്കാരിനെ തകർക്കാൻ ബിജെപി ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു എന്നാൽ രാജസ്ഥാനിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി യും തമ്മിലുള്ള അധികാര വടംവലിയാണെന്ന് ബിജെപി പ്രതികരിച്ചു

മഹാമാരി സമയത്ത് സ്വീകരിച്ച നടപടികൾ സംസ്ഥാനതല കായിക പ്രവർത്തനങ്ങൾ കായിക പ്രതിഭകൾ എന്നിവ രണ്ട് ദിവസത്തെ ഓൺലൈൻ ചർച്ചയിൽ വിഷയമാകും

ശ്രീനഗർ ജില്ലാ മജിസ്ട്രേറ്റ് ഡോ

ഈ മേഖലകളിലേക്ക് പ്രവേശിക്കാനോ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനോ പാടില്ല

ആരംഭഘട്ടത്തിൽ വ്യോമമാർഗ്ഗം എത്തുന്നവർക്കാടിരിക്കും മുൻഗണന ജമ്മുവിലെ ത്തുന്ന എല്ലാ സഞ്ചാരിക്ടർ ക്കും ആർ ടി

സി ആർ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്

മഹാത്മാ ഗാന്ധി ഗുജറാത്ത് തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്

സാങ്വി യുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അനുശോചനം രേഖപ്പെടുത്തി